പ്പെടുത്തുന്ന സംവിധാനം ഐ ശ്രിസ് ആർ ഒ വിജയകരമായി പരീക്ഷിച്ചു കോൺഗ്രസിൽ നേതാക്കൾ സ്വയം നിയന്ത്രണം പാലി ക്കണമെന്ന് മുതിർന്ന ക്യോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ക്യാമ്പസ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ എസ് ഡി പി ഐ യെ നിരോധിക്കണ മെന്ന് മുസ്സീംലീഗ് ് സുനന്ദ പൂഷ്ക്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോ ശ്ശിതരൂരിന് മുൻകൂർ ജാമ്യം ്റ് ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സര ങ്ങൾക്ക് നാളെ തുടക്കം

വിക്ഷേപണം പരാജയപ്പെ ടുന്ന സമയത്ത് വിക്ഷേപണ വാഹനത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ബഹിരാകാശ സഞ്ചാരിയെ എത്തിക്കു ന്ന താണ് ക്രൂ എസ് കേപ്പ് സിസ്റ്റ മെന്ന അടിയന്തര സംവിധാനം പരീക്ഷണസമയത്ത് മുന്നൂറോളം സെൻസറുകൾ ദൌതൃത്തിന്റെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തി

പാർട്ടി യോഗങ്ങൾ ഇന്നത്തെപ്പോലെ ആകരുതെന്നും വിശദമായ ചർച്ച നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

തിരു വ ന ന്ത പു രത്ത് ഇന്ദി രാ ഭ വ നിൽ കെ കരുണാകരൻ ജന്മശതാബ്ദി ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരസ്പരം കലഹിക്കുന്ന യാദവകുലം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെന്ന് ആൻണി പറഞ്ഞു നേതാക്കളുടെ പരസൃ പ്രസ്താവനായുദ്ധം പാർട്ടിയെ തകർക്കുകയാണ് കോൺഗ്രസിന്റെ ശത്രുക്കൾ കോൺഗ്ര സിൽ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു

കരുണാകരന്റെ കാലത്ത് പാർട്ടിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പിസം ഇല്ലാതാകുമായിരുന്നു വെന്നും ആന്റണി പറഞ്ഞു കൊച്ചി വിമാനത്താവളത്തിന് കെ കരുണാകരന്റെ പേര് നല്കി നിയമസഭ പ്രമേയം പാസാ ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ടി മുഹമ്മദ് ബഷീർ എം

ഇസ്ലാമിന്റെ പേരിൽ കലാപമുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും ആയു ധമെടുത്ത് ആശയം പ്രചരിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

എസ് ഡി പി ഐയുമായി രാഷ്ട്രീയസഖ്യം അപകടകരമാ ണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു

എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കസ്റ്റഡിയിലെന്നാണ് റിപ്പോർട്ട് കേസിലെ മുഖ്യ പ്രതി വടു തല സ്വദേശി മുഹമ്മദ് ഉൾപ്പെടെ പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്

പ്രതികളെപ്പറ്റി വൃക്തമായ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കി സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് ഡോ ശശി തരൂർ എം പിക്ക് ഡൽഹി പട്യാല ഹൌസ് കോടതി ഉപാധികളോടെമുൻകൂർ ജാമൃം അനുവദിച്ചു ഒരു ലക്ഷം രൂപ ജാമൃത്തുകയിലും അനുമതി യില്ലാതെ രാജ്യം വിട്ടുപോകരുതെന്നും ഉപാധികളോടെയാണ് പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ ജാമ്യം അനുവദിച്ചത് തെളിവുകൾ നശിപ്പിക്കരുതെന്നും കോടതി പറഞ്ഞു കേസിൽ പ്രത്യേക അന്വേഷണസംഘം കുറ്റപത്രം സമർപ്പിച്ചതാണെന്ന് മുൻകൂർ ജാമ്യാ പേക്ഷ യിൽ ഡോ ശശിതരൂർ പറഞ്ഞിരുന്നു അന്വേഷണം പൂർത്തിയാ യെന്നും കസ്റ്റ ഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും പ്രത്യേക അന്വേഷണസംഘം വൃക്തമാ ക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിക്കുകയു ണ്ടായി കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ വിചാരണ കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഡോ ശശിതരൂർ മുൻകൂർ ജാമ്യാപേക്ഷ നല്കിയത്

കേസിൽ എ ഡി ജി പിയുടെ മകളെ അറസ്റ്റുചെയ്യാൻ തക്ക തെളിവുകൾ കിട്ടിയിട്ടില്ലെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നല്കിയിരുന്നു

ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുന്ന ത് അന്വേഷണസംഘം യുവതിയുടെ ബന്ധുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു

നിയമസഭയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിക്കവെ മുഖ്യമന്ത്രി കുമാരസ്വാമിയാണ് ഇക്കാ ര്യമറിയിച്ചത്

രണ്ട് ലക്ഷം രൂപ വരെ വായ്പക ളാണ് എഴുതിതളളുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ധന വിലയിൽ നേരിയ വർധന

ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സമയം വൈകീട്ട് ഏഴരയ്ക്ക് ഉറുഗെട ഫ്രാൻസിനെ നേരിടും രാത്രി പതിനൊന്നരയ്ക്ക് ബ്രസീൽ ബെൽജിയവുമായി ഏറ്റുമുട്ടും

ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ മത്സരങ്ങൾ തത്സമയം സംഗ്രേ പഷണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു

തകരാറിലായ ട്രെയിനിലെ യാത്ര ക്കാരെ എതിർദിശയിലെത്തിയ ട്രെയിനിൽ മുട്ടം സ്റ്റേഷ നിലെത്തിച്ചു

തിരുവനന്തപുരത്തേക്ക് സർവീസ് പുനഃരാരംഭിച്ചു രാവിലെ ആറ് മണിയോടെയാണ് സിഗ്നനൽ സംവിധാ നത്തിൽ തകരാറുണ്ടായത്

കളളനോട്ടടി യന്ത്രം എത്തിച്ച മാറ്റിക്കട സ്വദേശി ബിനു കൽത്തൊട്ടി സ്വദേശി സണ്ണി എന്നിവരാണ് അറസ്റ്റിലായത്

അതിനിടെ സീരിയൽ നടി സൂര്യ അമ്മ രമാദേവി സഹോദരി പശ്രുതി എന്നിവരുടെ ജാമ്യാപേക്ഷ നെടുങ്കണ്ടം ്രകോടതി തളളി കോട്ടയം കെവിൻ കൊലക്കേസിലെ മുഖ്യ പ്രതിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ പൊലീസു കാരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരി ഗണിക്കും

ഐ ബിജു കോൺസ്റ്റബിൾ അജ യകുമാർ എന്നിവരുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യ പ്പെട്ടാണ് ഹർജി

കേന്ദ്ര നീക്കം വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് അവർ വൃക്തമാക്കി ക്ഷേത്രത്തിനകത്ത് നിധിശേഖരം ദർശനത്തിന് വയ്ക്കു ന്നതിൽ എതിർപ്പില്ലെന്നും രാജകുടുംബം അറിയിച്ചു

കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വൈകീട്ട് ബേപ്പൂരിലെ ബഷീറിന്റെ വസതിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കും

എട്ടാം വർഷമാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്

കഞ്ചാവും ഹുക്ക യുമടക്കം നിരവധി നിരോധിത ഉത്പന്നങ്ങളാണ് പിടി കൂടിയത് ഒരാളെ പൊലീസ് അറസ്റ്റു ചെയ്തു

പുളിങ്കുന്ന് വില്ലുവിരുത്തിൽ വീട്ടിൽ ടോജോ മാത്യു വിനാണ് സമ്മാനം സിവിൽ സൂപ്പർ വൈസറായി ജോലി നോക്കിയിരുന്ന ടോജോ നാട്ടിലേക്ക് മടങ്ങുന്ന തിന് തൊട്ടുമുമ്പെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്

പാലപ്പുറയിലെ കൊടപ്പനക്കൽ മാലിക് ആണ് മരിച്ചത് ബൈക്കിൽ കാർ തട്ടിയായിരുന്നു അപകടം

കൊല്ലം സ്വദേശി എഡ്മണ്ടാണ് മരിച്ചത്